ലയിക്കും ഇതോടെ രൂപപ്പെടുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ബാങ്ക്

എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈ കിംഗ്സിന് വിജയം

എസ്

മൂന്ന് മണിക്കൂർ ദൈർഘ്യം ഉള്ളതായിരിക്കും വിക്ഷേപണം

എസ് എൽ

പ്രതിരോധ ഗവേഷണത്തിനും നിരീക്ഷണത്തിനുമായി ദേശീയ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം വികസിപ്പിച്ചെടുത്ത എമിസാറ്റാണ് ഇന്ന് വിക്ഷേപിക്കുന്നതിൽ ഏറ്റവും പ്രധാന ഉപഗ്രഹം രാജ്യം പൂർണ്ണമായി എമിസാറ്റിന്റെ നിരീക്ഷണ പരിധിയിൽ വരൂം അതിർത്തി നിരീക്ഷണത്തിലും നിർണ്ണായക പങ്ക് വഹിക്കാനാകും

ഇതിനുശേഷം മറ്റൊരു ഭ്രമണപഥത്തിൽ പി

എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാന നേതാക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്ന തിരക്കിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും

ആന്ധ്രാപ്രദേശിലെ രജമുണ്ടെ തെലങ്കാനയിലെ സെക്കന്തരാബാദ് എന്നിവിടങ്ങളിലും പ്രധാനമന്ത്രി റാലികളെ അഭിസംബോധന ചെയ്യും

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒഡീഷയിലെ നബരാങ്ക്പൂരിൽ റാലിയിൽ പങ്കെടുക്കും ഒഡീഷയിലെ ഗജപതി ജില്ലയിലും അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് തെലങ്കാനയിൽ വിവിധ പൊതുപരിപാടികളിൽ പങ്കെടുക്കും

വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ പ്രത്യേക സുരക്ഷ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്

തിരുവനന്തപുരത്ത് യു ഡി എഫ്ല് സ്ഥാനാർത്ഥി ശശി തരൂർ ആറ്റിങ്ങൽ യു ഡി

വി പാറ്റ് മെഷീനുകളുമാണ് തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കുക

ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്തതുമമായി ബന്ധപ്പെട്ടാണ് ഇവരെ അറസ്റ്റു ചെയ്തത്

മേഖലയിൽ അന്വേഷണം ഊർജ്ജിതമാക്കി

ചിലിയിലെ ഇന്ത്യൻ സമൂഹവും ഫ്രണ്ട്സ് ്രഇന്ത്യയുമാണ് സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകിയ്ത്

സഹിഷ്ണുതസമാധാനം എന്നീവയാണ് നമ്മുടെ ലക്ഷ്യമെന്നും മഹാത്മാ ഗാന്ധിയും ഗ്രൂരു നാനക് ദേയ്ജിയും ഇക്കാര്യങ്ങളിൽ മാതൃകയാണെന്നും ശ്രീരാംനാഥ് കോവിന്ദ് പറഞ്ഞു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മൂന്നു ദിവസത്തെക്കാണ് രാഷ്ട്രപതി ചിലിയിൽ എത്തിയത്

ഇതോടെ ബാങ്ക് ഓഫ് ബറോഡ രാജ്യത്തെ മൂന്നാമത്തെ വലിയ വായ്പ ദാതാവായി മാറും കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

ഇന്നത്തെ ലയനത്തോടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും എച്ച്

സി ബാങ്കിനും പിന്നാലെ രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ബാങ്ക് ആയി ബാങ്ക് ഓഫ് ബറോഡ മാറും വിജയ ബാങ്കിന്റെയും ദേനാ ബാങ്കിന്റെയും നിക്ഷേപകർ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കളെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഉപഭോക്താക്കളായി ഇന്ന് മുതൽ കണക്കാക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം ആർ

ഐ

ബാങ്ക് ലയനം വിജയകരമാക്കുന്നുതിനും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിനും ക്ലല്ലാ പ്രവർത്തനവും നടത്തുമെന്ന് ബാങ്ക് ഓഫ് ബറോഡ മേധാവി പ്പി

മഹാരാഷ്ട്ര കർണ്ണാടക രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ എട്ട് മുതൽ പത്ത് ശതമാനംവരെ വിപണി സാന്നിധ്യം പുതിയ ബാങ്കിന് ഉണ്ടാകും ന്യൂസ് ഡസ്ക് ആകാശവാണി

മാധ്യമവാർത്തകളെത്തുടർന്നാണ് സമയപരിധി നീട്ടുന്നതെന്ന് പ്രത്യക്ഷ നികുതി ബോർഡ് അറിയിച്ചു എന്നാൽ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ ആധാർ നിർബന്ധമാക്കുന്ന ഉത്തരവ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും

ഒന്നിൽ കൂടുതൽ വിടുകൾ ഉള്ള ആൾ മറ്റ് വീടുകൾ ഒഴിച്ചിട്ടിരിക്കുകയ്കാണെങ്കിൽ അതിന് കിട്ടാവുന്ന വാടക കണക്കാക്കി നികുതി നൽകാമെന്ന് വ്യവസ്ഥ ഇല്ലാതാകും

ഡി

പാലക്കാട്ട് ചൂടിന്റെ തീവ്രതയും ഇന്നു കൂടും

ആയുർദ്ധാരികളായ ഒരു സംഘം കർഷകർക്കു നേരെ വ്വെടിപ്പിയ്ക്കുകയായിരുന്നു ഇവർ മാടുകളെ മോഷ്ടിക്കുന്ന സംഘത്തിലുളളവരാണെന്നു സംശയിക്കുന്നതായി അറിയിച്ചു

ബാര പാർസ ജില്ലകളിലായാണ് ആളുകൾക്ക് ഇന്നലെ അപകടമുണ്ടായത്

പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി സംഭവത്തിൽ അഗാധ ദുഖം രേഖപ്പെടുത്തി സുരക്ഷാ പ്രവർത്തനങ്ങൾ തുടരുകയാണ്

ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും

ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുളള അവസരമുണ്ട് ഇതിനായി ഇനിപറയുന്ന നമ്പരിൽ വിളിക്കാം